പിമാരുടെ യോഗം

ള ൽ ശ്വ ശ്വ ശ്വ ശ സംസ്ഥാനത്തെ മഴക്കെടുതി വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം ഇന്ന് വയനാട് തൃശൂർ ജില്ലകൾ സന്ദർശിക്കും രാവിലെ ജില്ലാ അധികൃതരിൽ നിന്ന് നാശനഷ്ടത്തിന്റെ പ്രാഥമിക വിവര ങ്ങൾ ശേഖരിച്ച ശേഷമായിരിക്കും സംഘത്തിന്റെ സന്ദർശനം വെള്ളപ്പൊക്കവും പ്രകൃതി നാശവും ഉണ്ടായ സ്ഥലങ്ങളിൽ സംഘം നേരിട്ട് നഷ്ടം വിലയിരുത്തും വയനാട് ജില്ലയിൽ സംഘത്തലവൻ ആഭ്യന്തര ജോയിന്റ് സെ ക്രട്ടറി ശ്രീപ്രകാശിന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘമാണ് സ ന്ദർശനം നടത്തുന്നത് രാവിലെ കളക്ട്രേറ്റിൽ എത്തുന്ന സംഘ ത്തിന് ജില്ല നേരിട്ട പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ബോധ്യ പ്പെടുത്തുന്ന റിപ്പോർട്ട് കൈമാറും തുടർന്ന് പുത്തുമല കുറി ച്ച്യാർമല തുടങ്ങിയ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സംഘമെത്തും തൃശൂരിൽ മൂന്നംഗ സംഘമായിരിക്കും മഴക്കെടുതി വിലയിരു ത്തുക ജില്ലാ അധികൃതരുമായി ചർച്ച നട്ടത്തി നാശ നഷ്ടത്തിന്റെ വ്യാപ്തി മനസിലാക്കിയ ശേഷമായിരിക്കും സംഘത്തിന്റെ സന്ദർശനം കേന്ദ്ര സംഘം നാളെ കണ്ണൂർ ജില്ലയിൽ സന്ദർശനം നടത്തും ഇന്ന് രാത്രിയോടെ വയനാട്ടിൽ നിന്നും സംഘം കണ്ണൂരിലെത്തും കേന്ദ്ര ആഭ്യന്തരി ജോയിന്റ് സെക്രട്ടറി ശ്രീപ്രകാശായിരിക്കും കണ്ണൂർ ജില്ലയിലെ സന്ദർശനത്തിന് നേതൃത്വം നൽകുന്നത് കേരളത്തിൽ തുടർച്ചയായ പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ദ സമിതി മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും

തീരുമാനിക്കേണ്ട നയപരമായ മാറ്റങ്ങളും ഭാവിയിൽ ഉണ്ടായേ ക്കാവുന്ന അടിയന്തിര സാഹചര്യങ്ങൾ നേരിടാനാവശ്യമായ പദ്ധ തികളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും അതിശക്തമായ മഴ സംസ്ഥാനത്തുണ്ടാകാൻ ഇടയാക്കിയ സാ ഹചര്യം സംഘം പരിശോധിക്കും ദുരന്ത സാധ്യതാ പ്രദേശങ്ങ ളുടെ ഭൂപടങ്ങൾ പുതുക്കാനും ദുരന്ത ലഘൂകരണ നടപടികൾ പ്രാവർത്തികമാക്കാനും സമിതി നിർദേശങ്ങൾ നൽകും

കൊച്ചി മരട് ഫ്ളാറ്റുകളിലെ താമസക്കാരെ സംരക്ഷിക്കുന്നതിന് നിയമപരമായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് സർവകക്ഷിയോ ഗത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകി ആവശ്യ മെങ്കിൽ കേന്ദ്രഗവൺമെന്റുമായി ബന്ധപ്പെടുന്നതിന് സർവകക്ഷി സംഘത്തെ അയക്കും ഫ്ളാറ്റുകൾ പൊളിക്കാതിരിക്കാൻ നട ത്തുന്ന എല്ലാ ശ്രമങ്ങളും സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്തും കോടതിയുടെ അംഗീകാരത്തോടെയായിരിക്കും എല്ലാ നടപടിയു മെന്നും ഇന്നലെ തിരുവനന്തപുർത്ത് ചേർന്ന സർവകക്ഷി യോഗ ത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ഇത്തരം കേസുകളിൽ ഇളവുകൾ നൽകാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുണ്ട് അത് കേന്ദ്രം ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യ മന്ത്രി വിശ്വാസം പ്രകടിപ്പിച്ചു അനധികൃതമായി ഫ്ളാറ്റുകൾ നിർമിച്ച ബിൽഡർമാരെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്ന് പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യോഗത്തിൽ ആവശ്യപ്പെട്ടു മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ എ സി മൊയ്തീൻ സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സി

ഐ സെക്രട്ടറി കാനം രാജേന്ദ്രൻ കോൺഗ്രസ് നേതാവ് കെ വി തോമ സ് മുസ്ലിം ലീഗ് നേതാന് എം കെ മുനീർ എം എൽ എ എന്നി വർ യോഗത്തിൽ പങ്കെടുത്തു മരടിലെ ഫ്ളാറ്റുടമകൾ നഗരസഭയുടെ ഒഴിപ്പിക്കൽ നോടീസിനെ തിരെ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും നോട്ടീസ് സ്റ്റേ ചെയ്യ ണമെന്നും തൽസ്ഥിതി തുടരണമെന്നും ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത് അഞ്ചു ദിവസത്തിനകം ഫ്ളാറ്റുകൾ ഒഴിയണമെന്നാവശ്യപ്പെട്ട് മരട് നഗരസഭ നൽകിയ നോട്ടീസ് നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ കോടതിയെ അറി യിക്കും എന്നാൽ മരട് ഫ്ളാറ്റ് വിഷയത്തിൽ രാജ്യത്തെ ഒരു കോടതികളും ഇടപെടാൻ പാടില്ലെന്ന സുപ്രീംകോടതി ഉത്തരവ് നിലവിലുണ്ട് കൊച്ചി പാലാരിവട്ടം മേൽപാലം നിർമ്മാണ അഴിമതികേസിൽ കരാർ കമ്പനിക്ക് മുൻകൂർ പണം നൽകാൻ അന്നത്തെ പൊതുമ രാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞ് ഉത്തരവിട്ടതായി കേസിൽ അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന മുൻ പൊതു മരാമത്ത് വകുപ്പ് സെക്രട്ടറി ടി ഒ സൂരജ് ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു സൂരജ് നൽകിയ ജാമ്യ ഹർജിയിലാണ് വെളിപ്പെ ടുത്തൽ

പ്രചാരണത്തിനായി ശേഷിക്കുന്ന നാല് ദിവസങ്ങളിൽ പരമാവധി ആവേശം പകരാൻ മണ്ഡലത്തിൽ മൂന്ന് മുന്നണിക ളുടെയും പ്രമുഖ നേതാക്കൾ രംഗത്തെത്തി അവസാന ഘട്ട ത്തിലെ പ്രചാരണത്തിന് എൽ ഡി എഫിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് ദിവസ്വും പാലായിലുണ്ട് ഇന്ന് രാവിലെ മേലുകാവ്മറ്റത്തും വൈകീട്ട് കൊല്ലപ്പള്ളിയിലും പേണ്ടാനംവയലിലും മുഖ്യമന്ത്രി പ്രചാരണ യോഗങ്ങളിൽ പ്രസം ഗിക്കും

ഡി എഫിന്റെ മഹാ സമ്മേളനം പാലായിൽ വൈകീട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ഉദ്ഘാടനം ചെയ്യും പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഘടക കക്ഷി നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് തുടങ്ങിയവരും സമ്മേളന ത്തിൽ പങ്കെടുക്കും

എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബി ജെ പി ദേശീയ ജന റൽ സെക്രട്ടറി മുരളീധർ റാവുവും ദേശീയ സെക്രട്ടറി സുനിൽ ദേവധറും പ്രചാരണം നടത്തും സ്ഥാനാർഥികളുടെ മണ്ഡല പര്യടനവും തുടരുകയാണ് കേരളത്തിന്റെ റയിൽവേ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ ദക്ഷിണ റയിൽവേ മാനേജറുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ എം പിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും മലബാറിന്റെ റയിൽവേ ആവശ്യങ്ങൾക്കൊപ്പം വയനാട് എം പി രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ വയനാട്ട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ആവശ്യങ്ങളും യോഗത്തിൽ ഉന്നയിക്കുമെന്ന് എം കെ രാഘവൻ എം പി അറിയിച്ചു മെമുസർവീസുകൾ ആരംഭിക്കൽ പുതിയ ബംഗ്ലുരു സർവ്വീസ് പാലക്കാട് ഡിവിഷനിലേക്ക് പുതിയ എൽ എച്ച് ബി കോച്ചുകൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട നിലവാരത്തിലേക്കുയർത്തുന്ന പ്പദ്ധതി വേഗത്തിലാക്കൽ ഫറോക്ക് കരിപ്പൂർ അങ്ങാടിപ്പുറം റെയിൽവേ ലൈൻ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റംഷൊർണ്ണൂരിനെ ട്രയാങ്കുലാർ സ്റ്റേഷനാക്കി ഉയർത്തൽ മംഗലാപുരം ഷോർണ്ണൂർ മൂന്നാം റെയിൽവേ ലൈൻ നിർമ്മാണം റെയിലോരം പാതകളുടെ അനുമതി നിലമ്പൂർണ്ടണ്ടനഞ്ചങ്കോട് പാത എന്നിവ യോഗത്തിൽ ചർച്ചയായേക്കും മാലിന്യ നിർമാർജന പദ്ധതിയായ സ്വഛ്ഭാരത് അഭിയാൻ ആവി ഷ്കരിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗ്ലോബൽ ഗോൾ കീപ്പർ അവാർഡ് അടുത്തയാഴ്ച സമ്മാനിക്കും

ബ്ലൂം ബർഗ് ഗ്ലോബൽ ബിസിനസ് ഫോറത്തിൽ പങ്കെടു ക്കുന്ന ലോക നേതാക്കളെയും വൃവസായ പ്രമുഖരെയും നരേ ന്ദ്രമോദി അഭിസംബോധന ചെയ്യും

രാത്രി ഏഴിനാണ് മത്സരം

മോസ്കോയിൽ ലോക ബോക്സിങ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ ചാമ്പ്യൻ അമിത് പൻഗൽ ഉൾപ്പെടെ ഇന്ത്യയുടെ മൂന്ന് ബോക്സർമാർ ക്വാർട്ടർ ഫൈനലിലെത്തി

നേരത്തെ പോണ്ടിച്ചേരിയും കേരളത്തെ തോൽപിച്ചിരുന്നു പതിനാറാമത് കോഴിക്കോട് ജില്ലാ ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് കല്ലാനോട് സെൻമേരിസ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ആരംഭിച്ചു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കെ എം ഒ ഹയർസെക്കൻഡറി കൊടുവള്ളിയും എളേറ്റിൽ എം ജെ ഹയർസെക്കൻഡറിയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്പീഡ് ബോൾ അക്കാഡമിയും സെന്റ് ആന്റണീസ് ഗേൾസ് ഹയർസെക്കൻഡറി വടകരയും ഫൈനലിൽ പ്രവേശിച്ചു കോഴിക്കോട് കാവിലുംപാറ ഗ്രാമ പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ഇന്ന് രാവിലെ സ്പീക്കർ പ്പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

വിവാഹ പൂർവ്വ കൌൺസലിംഗ് നിയമം മൂലം നിർബന്ധമാക്ക ണമെന്ന് വനിത കമ്മീഷൻ അംഗം ഇ എം രാധ ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറിന് ശുപാർശ നൽകിയിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങളും വിവാഹബന്ധം വേർപ്പെടുത്തുന്നതുമാ യി ബന്ധപ്പെട്ട് കേസുകളും ഒരു പരിധിവരെ ഇതുവഴി കുറയ് ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അവർ പറഞ്ഞു

പ്രവർത്തന ്മികവിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളും സംഘങ്ങളും വളരെ മുൻപന്തിയിലാണെന്ന് നബാർഡ് ചീഫ് ജനറൽ മാനേജർ ആർ

കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ കാർബൺ ആഗിരണ ശേഷി കൂടിയ മരങ്ങൾ വളർത്തുന്നതിൽ വനാശ്രിത സമൂഹങ്ങ ളിലെ വിദ്യാർഥികൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയിൽ സംസ്ഥാനത്ത് നിന്ന് അഞ്ച് പേർക്ക് അവസരം ലഭിച്ചു

മന്ത്രി കെ രാജു ഇതു സംബ ന്ധിച്ച അറിയിപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തൃശൂരിൽ കൈമാ റി കോഴിക്കോട് എൻ ഐ ടിയിലെ ക്ലബ് മാത്തമാറ്റിക്കയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർഥികൾക്കായി സംഘടിപ്പിച്ച സംസ്ഥാനതല ഗണിതോത്സവത്തിൽ തൃശൂർ ചിൻമയ വിദ്യാലയത്തിലെ അനിരുദ്ധ് ദേവദത്ത് എന്നിവർ വിജയികളായി